ഡി

ഇതൊരു ചെറിയ പ്രശ്നമല്ലെന്നും കുടുംബ ങ്ങളുടെ തകർച്ചയ്ക്കും വൃക്തികളുടെ ആരോഗൃത്തിനുമൊപ്പം രാ ജ്യസുരക്ഷയെയും ദോഷകരമായി ബാധിക്കുമെന്ന് അദ്ദേഹം ന്യൂ ഡൽഹിയിൽ പറഞ്ഞു മയക്കുമരുന്ന് വിമുക്ത ഇന്ത്യ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി തയാറാക്കിയ വീഡിയോ സന്ദേശത്തി ലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം ലോകത്ത് മൂന്ന് കോടിയിലേറെ ആളുകൾ മയക്കുമരുന്നിന്റെ പി ടിയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു മയക്കുമരുന്ന് ഉപയോഗിക്കു ന്ന യുവാക്കളുടെ എണ്ണം വർധിച്ചു വരികയാണ് മയക്കുമരുന്ന് ഉ പയോഗം ആഡംബരത്തിന്റെ ഭാഗമാണെന്ന ധാരണ വൻഅബദ്ധ മാണെന്നും പ്രധാനമന്ത്രി വൃക്തമാക്കി ഭീകരവാദികളും ദേശ വി രുദ്ധ ശക്തികളും അവരുടെ വിധംസക പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തുന്നത് മയക്കുമരുന്ന് വിൽപനയിലൂടെയാണ് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനാണ് ഈ വരുമാനം അവർ ഉപയോഗിക്കുന്ന ത് ആത്മവിശ്വാസവും മനോനിയന്ത്രണവും പുലർത്തുന്നവർ ഒരി ക്കലും മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് എത്തിച്ചേരില്ലെന്നും പ്ര ധാനമന്ത്രി പറഞ്ഞു മയക്കുമരുന്നിന് അടിമകളായവരെ സഹായി ക്കാൻ പുതുതലമുറ മുന്നോട്ടുവരണമെന്നും പ്രധാനമന്ത്രി സന്ദേ ശത്തിൽ ആവശ്യപ്പെട്ടു

മുത്തലാഖ് നിരോധന ഓർഡിനൻസ് ഉൾപ്പെടെ നാല് ഓർഡിനൻസുകൾ വീണ്ടും പുറപ്പെടുവിക്കാനും പ്രധാനമന്ത്രി യുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗപ്പ അനുമതി നൽകി കമ്പനി ഭേദഗതി ഓർഡിനൻസ് ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ ഭേദഗതി ഓർഡിനൻസ് അനധികൃത നിക്ഷേപ പദ്ധ തികൾ തടയുന്ന ഓർഡിനൻസ് എന്നിവയാണ് വീണ്ടും പുറപ്പെടു വിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ആയിരം ദിനാഘോഷ പരിപാടി ഇന്ന് കോഴിക്കോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

വൈകീട്ട് കടപ്പുറത്താണ് സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഇ ചന്ദ്രശേഖരൻ ചടങ്ങിൽ അധ്യക്ഷനാകും മന്ത്രിമാരായ ടി പി രാമ കൃഷ്ണൻ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കട ന്നപ്പള്ളി തുടങ്ങിയവർ സംബന്ധിക്കും എട്ടു ദിവസത്തെ പരിപാ ടികളുടെ ഭാഗമായി കലാപരിപാടികൾക്കു പുറമെ വിവിധ വകുപ്പു കളുടെയും മിഷനുകളുടെയും പ്രദർശനവും ബീച്ചിൽ സംഘടിപ്പി ച്ചിട്ടുണ്ട് ദിനാഘോഷങ്ങളുടെ സമാപനം അടുത്ത ബുധനാഴ്ച തിരു വനന്തപുരത്ത് നടക്കും ദിനാഘോഷത്തോടനുബന്ധിച്ച് എല്ലാ ജില്ല കളിലും വിപുലമായ പരിപാടികളും നിരവധി പദ്ധതികളുടെ ഉദ്ഘാ ടനവുമുണ്ടാകും ഗവൺമെന്റിന്റെ ആയിരം ദിനാഘോഷങ്ങളുടെ ഭാഗമായി തൊടു പുഴ സബ് രജിസ്ട്രാർ ഓഫീസിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമാണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിന്ന് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നിർവഹിച്ചു

ഇടുക്കി പാക്കേജ് സംബന്ധിച്ച് നാളെ ജില്ലാതല സെമി നാർ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ആഘോഷങ്ങളുടെ ഇടുക്കി ജില്ലാതല പരിപാടി വൈകീട്ട് മന്ത്രി എം എം മണി ചെറു തോണിയിൽ ഉദ്ഘാടനം ചെയ്യും ഇടുക്കി കുടിയേറ്റ സ്മാരക മ്യൂസിയത്തിന് മന്ത്രി തറക്കില്ലിടും ് ് പാലക്കാട്ട് ആയിരം ദിനാഘോഷങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയ ത്തിൽ നിർവഹിക്കും കേരളശ്ശേരിയിലെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സ്മാരകം കാരാക്കുറുശ്ശിയിലെ ലഫ്നനന്റ് കേണൽ നിരഞ്ജൻ സ്മാരക റോഡ് മീനാക്ഷിപുരം പ്രീമെട്രിക് ഹോസ്റ്റൽ എന്നിവ ഇന്ന് ഉദ്ഘാടനം ചെയ്യും

വിവിധ വകുപ്പുകളുടെ നേതൃ ത്വത്തിൽ സെമിനാറുകൾ സാംസ്കാരിക സമ്മേളനം കലാപരി പാടികൾ എന്നിവയുമുണ്ടാകും ് കണ്ണൂർ ജില്ലാതല പരിപാടികളുടെ ഉദ്ഘാടനം ഇന്ന് വൈകീട്ട് ടൌൺ സ്കയറിൽ മന്ത്രി ഇ പി ജയരാജൻ നിർവഹിക്കും

ഗവൺമെന്റിന്റെ ആയിരം ദിനാഘോഷ പരിപാടിയിൽ നിന്ന് യു ഡി എഫ് വിട്ടു നിൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നി ത്തല തിരുവനന്തപുരത്ത് അറിയിച്ചു സംസ്ഥാന ജില്ലാ തല ആഘോഷത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെങ്കിലും നിയോജക മണ്ഡല തലങ്ങളിലെ വികസന പദ്ധതികളിൽ യു ഡി എഫ് ജനപ്രതിനിധി കൾ പങ്കെടുക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി സംസ്ഥാനം വൻ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് കോടികൾ ചെലവ ഴിച്ച് ആഘോഷപരിപാടികൾ നടത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫ് വിട്ടു നിൽക്കുന്നത്

പീതാംബരനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കേസിൽ പീതംബരനടക്കം ഏഴ് പേരാണ് പിടിയി ലായത് അതേസമയം കേസിൽ പ്രതിയായ പീതാംബരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി സിപിഐഎം കാസർകോട് ജില്ലാ കമ്മിറ്റി അറിയിച്ചു കാസർകോട്ട് കൊലചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തക രുടെ ദുഖത്തിൽ പങ്കുചേർന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നി ത്തല മകന്റെ വിവാഹ സൽക്കാരം വേണ്ടെന്ന് വെച്ചു

യു ഏറ്റെടുക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് കോഴിക്കോട്ട് അറിയി ച്ചു

ആറ്റുകാൽ പൊങ്കാല ഇന്ന് തിരുവനന്തപുരത്തെ നഗരവീഥികൾ ഉൾപ്പെടെ മുഴുവൻ സ്ഥലങ്ങളിലും പൊങ്കാല അർപ്പിക്കാനെത്തിയ വരുടെ വൻതിരക്കാണ് അനുഭവപ്പെടുന്നത്

തന്ത്രി തെക്കേടത്ത് കുഴിക്കാട്ട് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് പണ്ടാരഅടുപ്പിൽ അഗ്നിപകരാൻ മേൽശാ ന്തിക്ക് ദീപം കൈമാറും തിടപ്പള്ളിയിലെ പൊങ്കാലഅടുപ്പ് ജലി പ്പിച്ച ശേഷം അതിൽനിന്ന് പകരുന്ന അഗ്നി ഉപയോഗിച്ചാണ് ഭക്ത രുടെ പൊങ്കാല അടുപ്പുകൾ കത്തിക്കുന്നത്

സുധാകരൻ ആലപ്പുഴയിൽ അറിയിച്ചു

തലപ്പാടി മുതൽ ചെങ്ങള വരെയും ചെങ്ങളമുതൽ കാലിക്കടവ് വരെയും റോഡ് ആറ് വരിയാക്കാൻ നടപടി തുടങ്ങിയതായും മന്ത്രി പറഞ്ഞു സംസ്ഥാന ക്ഷീര കർഷക പാർലമെന്റ് മറ്റന്നാൾ ആലപ്പുഴയിൽ ആരംഭിക്കും രണ്ട് ദിവസത്തെ പരിപാടി മന്ത്രി കെ

ഓപ്പൺഫോറം മന്ത്രി കെ

ശനിയാഴ്ച സമാ പന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കുട്ടികളിൽ വർധിച്ചുവരുന്ന ലഹരി ഉപയോഗം ഭാവി തലമുറയ്ക്ക് ഭീഷണിയാണെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ്സിങ്ങ് നീലേശ്വരത്ത് പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്റെ വിമുക്തി പദ്ധ തിയുടെ ഭാഗമായി നീലേശ്വരം താലൂക്ക് ആശുപത്രിയ്ക്കു സമീപം തുടങ്ങിയ ലഹരിമോചന ചികിത്സാകേന്ദ്രം ഉദ്ഘാടനം ചെയ്തുവ രികയായിരുന്നും എക്സൈസ് കമ്മീഷണർ സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയുടെ കണ്ണൂർ ജില്ലയിലെ പര്യടനം ഇന്ന് അവസാനിക്കും രാവിലെ ഇരിട്ടിയിലെ സ്വീകരണത്തിന് ശേഷം യാത്ര വയനാട് ജില്ലയിലേക്ക് പോകും മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ സി വേണുഗോപാലിനെതിരെ നൽകിയ പീഡന പരാതിയിൽ അന്വേ ഷണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് സോളാർകേസിലെ പ്രതിയായ സ്ത്രീ ഹൈക്കോടതിയിൽ ഹർജി നൽകി

അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ക്രൈംബ്രാഞ്ചിന് നിർദേശം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം

ചാന്ദ്നി എന്നിവർക്ക് വെള്ളി ലഭിച്ചു

ചെന്നൈയിലെ സെമിയിൽ യു മുംബൈയെ തകർത്താണ് ഹീറോസ് ആദ്യ ഫൈനലിസ്റ്റുകളായത് രണ്ടാം സെമി യിൽ ഇന്ന് കൊച്ചി സ്പൈക്കേഴ്സും ചെന്നൈ സ്പാർട്ടൻസും ഏറ്റുമുട്ടും ചാമ്പ്യൻസ് ട്രോഫി സംസ്ഥാന ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് കൊച്ചിയിൽ തുടങ്ങും ഒമ്പത് പുരുഷ ടീമുകളും ഏഴ് വനിതാ ടീമുകളും പങ്കെടുക്കും